ബിൽ പാസായാൽ കഴിഞ്ഞ മാർച്ചിൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയ സുപ്രീം കോടതി ഉത്തരവ് അസാധുവാകും പട്ടികവിഭാഗ ക്കാർക്കെതിരായ അതിക്രമങ്ങളിൽ ആരോപണവിധേ യനായ വൃക്തിയെ അന്വേഷണത്തിനുശേഷം മാത്രമേ അറസ്റ്റു ചെയ്യാവൂ എന്നായിരുന്നു സുപ്രീംകോടതി ഉത്തരവ്

ആഭ്യന്തര മന്ത്രാലയം ജോയിൻറ് സെക്രട്ടറി എ

രണ്ടു ടീമുകളായാണ് കേന്ദ്രസംഘം ദുരിതമേഖലകളിൽ സന്ദർശനം നടത്തുന്നത് സംസ്ഥാന റിലീഫ് കമ്മീഷണറുമായി സംഘം കൂടിക്കാഴ്ച നടത്തിയശേഷം പിറ്റേന്നു മുതൽ സംഘം വിവിധ ജില്ലകളിൽ പര്യടനം നടത്തും ആദ്യ സംഘം ആലപ്പുഴ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ജില്ലകളും രണ്ടാം സംഘം എറണാകുളം കോഴിക്കോട് തൃശ്ശൂർ ജില്ലകളും സന്ദർശിക്കും

വെള്ളപ്പൊക്കം രൂക്ഷമായ ആലപ്പുഴയിലെ കുട്ട നാടൻ മേഖലയിൽ നിന്ന് ഇതുവരെ വെളളം ഇറങ്ങിത്തുടങ്ങിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാധ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് എത്തി ച്ചുവരികയാണ്

കോട്ടയം ആലപ്പുഴ ജില്ലകൾക്കൊപ്പം അപ്പർ കുട്ടനാട് പ്രദേശങ്ങ ളെയും ദുരിതബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണ മെന്നും മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടു

എസ് ശ്രീധരൻപിളള ആവശ്യപ്പെട്ടു കുട്ടനാട് പാക്കേജ് അട്ടിമറിക്കപ്പെട്ടതാണ് മേഖലയിലെ വെളളപ്പൊക്കക്കെടു തിക്ക് പ്രധാന കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു ആല പ്പുഴയിലെ പ്രളയ ബാധിത പ്രദേശങ്ങൾ നേരിൽകണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീധ രൻപിളള

തിരുവ നന്തപുരത്തും കൊച്ചിയിലും തൃശൂരിലും വിവിധ പരിപാടി കളിൽ അദ്ദേഹം പങ്കെടുക്കും നാളെ വൈകീട്ട് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തുന്ന രാംനാഥ് കോവിന്ദ് രാജ്ഭവനിൽ തങ്ങും തിങ്കളാഴ്ച രാവിലെ നിയമസഭയുടെ വജ്രജൂബിലി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വൈകീട്ട് അദ്ദേഹം കൊച്ചിയിലേക്ക് പോകും

തൃശൂരിൽ സെന്റ് തോമസ് കോളജിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത ശേഷം അദ്ദേഹം ഹെലി കോപ്ടറിൽ ഗുരുവായൂർക്ക് പോകും

എം ജോസഫിനെ സുപ്രീംകോട്ടതി ജഡ്ജിയായി നിയമിക്കുന്ന ഉത്തരവ് നിയമ മന്ത്രാലയം പുറപ്പെടുവിച്ചു നിയമനം രാഷ്ട്രപതി അംഗീകരിച്ചതോടെയാണ് ഉത്ത രവ് ഇറക്കിയത് ഏഴ് മാസത്തോളം വൈകിയാണ് ജസ്റ്റിസ് ജോസഫിന്റെ നിയമനത്തിന് അംഗീകാരം ലഭിച്ചത് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി ഒഡീഷ് ചീഫ് ജസ്റ്റിസ് വിനീത് സരൺ എന്നി വരെയും സുപ്രീംകോടതി ജഡ്ജിമാരാക്കിയിട്ടുണ്ട് കേരള ഹൈക്കോടതി ആക്ടിംങ് ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയിയെ ചീഫ് ജസ്റ്റിസ് ആക്കാനും നിയമ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു

സുപ്രീംകോടതി പരിഗണിക്കുന്ന ബന്ദിപ്പൂർ യാത്രാ പ്രശ് നത്തിൽ ഗവൺമെന്റിന് ഇത്തരമൊരു തീരുമാനമെടുക്കാനാവി ല്ലെന്നും അദ്ദേഹം ബെങ്ക ലൂ രു വിൽ പറഞ്ഞു വിവാദങ്ങൾ കുത്തിപ്പൊക്കാൻവേണ്ടി ചില കേന്ദ്രങ്ങൾ തെറ്റായ വാർത്ത പരത്തുകയാണെന്നും കുമാരസാമി വിശദീകരിച്ചു

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ അധ്യ ക്ഷതയിൽ ചേരുന്ന യോഗം ദേശീയ പൌരത്വ രജിസ്റ്റർ റഫേൽ യുദ്ധവിമാന അഴിമതി എന്നിവയടക്കം വിഷയ ങ്ങൾ ചർച്ച ചെയ്യും അടുത്ത ലോക് സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് അകറ്റിനിർത്താൻ പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യം രൂപപ്പെടുത്തുന്നതിന് ഊന്നൽ നല്കിയായിരിക്കും പ്രവർത്തകസമിതിയോഗം ലലലലലലലലലലലല ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പി വി സിന്ധു സെമിയിൽ കടന്നു നാൻജിങ്ങിൽ നില വിൽ ചാമ്പൃനായ നൊസോമി ഒകുഹാരയെ തോൽപി ച്ചാണ് സിന്ധു സെമിയിലെത്തിയത് ലോക രണ്ടാം നമ്പർ താരമായ ജപ്പാന്റെ അകാനെ യമഗൂച്ചിയുമായി സെമിയിൽ സിന്ധു നാളെ ഏറ്റുമുട്ടും

സ്പോർട്സ് കൌൺസിൽ പ്രസി ഡന്റ് ടി പി ദാസൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ് തു

മലപ്പുറം എം

പിയും കെ എ പി രണ്ടാം ബറ്റാലിയനും തമ്മിലാണ് പോരാട്ടം

ബൈപ്പാസിന്റെ ബദൽ സാധൃത പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്നലെ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗ ഡ്കരി അൽഫോൺസ് കണ്ണന്താനം എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിദഗ്ധ് സംഘത്തെ കണ്ണൂരിലേക്ക് അയക്കാൻ തീരുമാനമായത്

കർബല ജംഗ്ഷനിലെ ജില്ലാ ഖാദി വ്യവസായ ഓഫീസ് അങ്കണത്തിൽ മന്ത്രി ജെ മേഴ് സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു

ആന്ധ്ര പ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് കാറിൽ കൊണ്ടുവന്ന കഞ്ചാവാണ് ഇന്നലെ വൈകീട്ട് പൊലീസ് കസ്റ്റഡിയി ലെടുത്തത് റെയിൽവെസ്റ്റേഷനിൽ റെയിൽവെ സംരക്ഷണസേ നയും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധന യിൽ അഞ്ച് കിലോയോളം കഞ്ചാവു കലർന്ന മിഠാ യിയും നിരോധിത പുകയില ഉത്പന്നങ്ങളും പിടികൂ ടി കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ ജനറൽ കംപാർട്ട്മെന്റിൽ നിന്നാണ് ഇവ പിടികൂടിയത്

മൂന്ന് തോട്ടങ്ങളിലായി ആയിരത്തോളം കഞ്ചാവ് ചെടികളാണ് വളർത്തിയിരുന്നത്

ഇവയ്ക്ക് നോട്ടീസ് നൽകി തുടർ നടപടി യെടുക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു ജില്ല യിലെ മുഴുവൻ സ്കൂൾ കെട്ടിടങ്ങളുടെയും ഫിറ്റ്നെസ് പരിശോധിക്കാൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നല്കി

പി അബ്ദുൽ വഹാബിന്റെ മകൻ ദേഹത്തു തെങ്ങുവീണ് മരിച്ചു തേഞ്ഞിപ്പലം പാണമ്പ്രയിലെ അഫീഫ് അബ്ദുറഹിമാനാണ് മരിച്ചത് മൊറയൂരിലെ കൃ ഷി സ്ഥലത്ത് പിതാവിനൊപ്പം പോയതായിരുന്നു അബ്ദുറ ഹ്മാൻ ഖബറടക്കം ഇന്നു വൈകിട്ട് നാലിന് പാണമ്പ്ര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും

മിനി സിവിൽസ്റ്റേഷൻ കോൺഫറൻസ് ഹാളി ലാണ് ആദ്യ ജനസമ്പർക്ക പരിപാടി

ഇടുക്കി സ്വദേശി എഡ്വിൻ ജോർജ്ജ് ആണ് അറസ്റ്റിലായത്